രാജ്യത്തിന്റെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കർണാടകത്തിൽ ഉപതെരഞ്ഞെട്ടുപ്പ് നടന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും രണ്ട് അസ്ട്ര്ക്സി മ്ണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി

സഹകരണ മേഖല രണ്ടായിരത്തോളം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

രാജ്യത്തിൽ ദ്രുതഗതിയിൽ പുരോഗതിയും ശക്തമായ വികസനവും നടക്കുന്നതായാണ് വ്യക്തമാക്കുന്നതെന്ന് ശ്രീ

സ്റ്റാർട്ട്അപ്പുകളിലും ഇത് കണ്ടുപിടിത്തങ്ങളിലും കാർഷികമേഖലയിലും ഗവണ്മെന്റ് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ വിദൂരസ്ഥ ഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിച്ചേർന്നതായും ഇത് വളരെ അനൂകൂലമായ ഒരു മാറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു

വിജയ കഥകൾ രചിക്കുന്നതിന് അനന്തമായ സാധ്യതകളും കഴിവുമാണ് ഛത്തീസ്ഗഡിന് ഉള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്നതായിരിക്കണം ദീവാലി വേളയിൽ ഓരോ ബൂത്തുതല പ്രവർത്തകന്റെയും തീരുമാനമെന്ന് ശ്രീ

കഠിനപരിശ്രമവും അർപ്പണബോധവും ഉള്ള പാർട്ടി പ്രവർത്തകരാണ് ബിജെപിയുടെ ഭാഗ്യം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

സ്റ്റേഷനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്ക്ിയിരുന്നു

ഇതുൾപ്പെടെ ഇതുവരെ രണ്ടായിരത്തിലധികം പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്

ഋഷികേശിലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്യൻസിൽ നടന്ന ബിരുദദാനചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അ്ദ്ദേഹം സ്വർണ്ണമെഡൽ ജേതാക്കളെല്ലാം പെൺകുട്ടികളാണെന്നത് സ്ത്രീകളുടെ സാമൂഹിക പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെ ഹരിദ്വാറിലെ പതജ്ഞലി യോഗ പീഠിൽ ഉത്തരഖണ്ഡ് വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ജ്ഞാൻ കുംഭ് സമ്മേളനവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

ഇതനുസരിച്ച് പാച്കു പ്പാതക സിലിണ്ടർ നിറയ്ക്കുന്നതും പുതിയ കണക്ഷൻ ബൂക്ക് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും പൊതു സേവനകേന്ദ്ർ വഴിയാകും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ ഇലക്ട്രോണിക്സ് ഐ ടി

രാജ്യത്തെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പാചകവാതക വിതരണമേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും വിധമുള്ള സുപ്രധാന നാഴികകല്ലാണ് കരാർ എന്ന് മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ പറഞ്ഞു സേവനം നൈപുണൃ വികസന വകുപ്പും ഭാവിയിൽ പൊതു സേവന കേന്ദ്രത്തിന്റെ സേവനം തേടുമെന്ന് മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡസ്ക് ആകാശവാണി

പ്രളയത്തിൽ ജീവസന്ധാരണത്തിനുള്ളതെല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാനും സഹകരണ പ്രസ്ഥാനത്തിന് കഴിയും കണ്ണൂർ ജില്ലയിലെ പിണറായി സർവീസ് സഹകരണ ബാങ്കിന്റെ പാർക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രത്യേകതയായ മതനിരപേക്ഷ മനസ്സാണ് പ്രളയകാലത്ത് നാം കണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയകാലത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു

ആപത്ഘട്ടത്തിൽ സഹായിക്കാനുള്ള സന്നദ്ധത ജനങ്ങൾക്കുണ്ടന്നും അദ്ദേഹം പറഞ്ഞു

മൂന്നു ദിവസത്തേക്കാണ് സന്നിധാനം പമ്പ ന്നിലയ്ക്കൽ ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നിരോധനാജ്ഞ ചിത്തിര ആട്ടത്തിരുനാളിന് ശബരിമല ക്ഷേത്രനട മറ്റെന്നാൾ വൈകിട്ട് തുറക്കും പ്രായഭേദമന്യേ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അനിഷ്ടസംഭവങ്ങൾ ഒഴിവാക്കാനാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്

ശിശുക്കൾക്ക് തല ചെറുതായി പോകുന്ന ന്യൂനത ഉണ്ടാകുന്നതാണ് മൈക്രോസെഫാലി സ്ഥിതിഗതികൾ എല്ലാ ദിവസവും വിലയിരുത്തി വരികയാണെന്ന് ആരോഗ്യവകുപ്പിന്റെ കേന്ദ്ര പ്രസ്താവനയിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

സിക്ക വൈറ്റ്സ് കൃബാധ ഉണ്ടായ പ്രദേശങ്ങളിൽ ഗർഭിണികളിൽ ഇതിന്റെ പ്രതിക്രുണ്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഗവണ്മെന്റ് അതീവ ജാഗ്രത് ഷുലർത്തി വരികയാണ് ജയ്പൂരിൽ സിക്ക വൈറസ് ബാധ പൊട്ടിപ്പുർട്ട്പെട്ട വേളയിൽ ശേഖരിച്ച വൈറസിൽ അഞ്ച് ഇനങ്ങൾ ഉള്ളതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഗർഭസ്ഥ ശിശുവിൽ മൈക്രോസഫാലി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിക്ക വൈറസ് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല സിക്ക വൈറസ് രോഗബാധയെയും തടയുന്നതിനുള്ള മാർഗ്ഗങ്ങളെയും കുറിച്ച് ബോധവത്ക്കരണം നല്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഗവണ്മെന്റ് ചെയ്തിട്ടുണ്ട്

പനി തൊലിപ്പുറത്ത് നിറവൃത്യാസത്തോടു കൂടിയ തടിപ്പ് കൺജംഗ്റ്റിവൈറ്റിസ് തലവേദന പേശി സന്ധി വേദന തുടങ്ങിയ അസ്വസ്ഥതകൾ സിക്ക വൈറസ് ബാധയിൽ ഉണ്ടാകും ന്യൂസ് ഡസ്ക് ആകാശവാണി

കാർട്ടർ ഫൈനലിൽ ഇംഗ്ലീഷ് താരം ടോബി പെന്റിയേ കീഴ്പ്പെടുത്തിയാണ് സുഭാൻകർ സെമിഫൈനലിൽ കടന്നത്

ഇതിന്റെ ഫലമായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ചൊവ്വാഴ്ച മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് അതിനിടെ വടക്കുകിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം സമീപ സംസ്ഥാനങ്ങളിൽ ശക്തിപ്രാപിക്കുന്നതിനാൽ കേരളത്തിലും കനത്തമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിര്യീക്ഷ്ണ്കേന്ദ്രം അറിയിച്ചു